നിയമസഭ പ്രമേയം പാസ്സിട്ടുക്കിയതിന് ഭരണഘടനാ സാധുതയില്ലെന്ന് ഗവ്ദ്രണർ ആരിഫ് മുഹമ്മദ് ഖാൻ

പൌരത്യ ഭേദഗതി നിയമം ഗവർണർ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കിയതിന് നിയമ സാധുതയോ ഭരണഘടനാ സാധുതയോ ഇല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രമേയം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

നിയമം കേരളത്തെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു

മുരളീധരൻ പൌരത്വ നിയമത്തിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കിയതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര മന്ത്രി വി

ട്രൂലോക് കേരള സഭ രാഷ്ട്രീയ പരിപാടിയായി അധഃപതിച്ചെന്ന് ശ്രീ ്മൂര്ളീധരൻ പ്രതികരിച്ചു

വേണുഗോപാൽ ജനപ്രതിനിധി കാണിക്കേണ്ട മര്യാദ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ആ മര്യാദയെ വളച്ചൊടിച്ച് വിവാദമാക്കിയത് ശരിയായില്ലെന്നും ശ്രീ വേണുഗോപാൽ തൃശൂരിൽ പറഞ്ഞു

തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുഷ്പമേളയായ പ്രകൃകാച്ചിൻ ഫ്ളവർ ഷോയിൽ അൻപതിനായിരത്തിലേറെ പൂച്ചെടികൾ പ്രദർശനത്തിന് എത്തും പുഷ്പാലങ്കാരത്തിനായി അയ്യായിരുത്തിൽപ്പരം ചതുരശ്ര അടിയിൽ പ്രത്യേക പവലിയൻ ഒരുക്കിയിട്ടുണ്ട്